നിരക്ക് കൈവരിച്ചതായി കേന്ദ്ര് ആരോഗൃ മന്ത്രാലയം

പ്രതിരോധപ്രവർത്തനങ്ങളിൽ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ വേണമെന്ന് മുഖ്യമന്ത്രി

നിയമസഭ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മിഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം ബിഹാറിൽ

പുറത്താക്കാൻ പ്രതിഷേധ പരിപാടികളുമായി പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യം

മന്ദിരം തകർത്തത് ആസൂത്രിതമല്ലെന്ന് കോടതി ജസ്റ്റിസ് എസ്

യാദവ് അദ്ധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് വിധി മുൻ ഉപപ്രധാനമന്ത്രി എൽ

അദ്വാനി മുൻ കേന്ദ്രമന്ത്രിമാരായ എം

ജോഷി ഉമ ഭാരതി ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി കല്യാൺ സിംഗ് തുടങ്ങിയവരാണ് കേസിലെ പ്രധാന കുറ്റാരോപിതർ

രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണപ്രദേശങ്ങളിലും രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് രോഗമുക്തരുടെ എണ്ണം സർക്കാർ നടപ്പാക്കുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഈ നേട്ടത്തിന് കാരണമെന്ന് മന്ത്രാലയം അറിയിച്ചു

ചികിത്സയിലുള്ളത്

ആന്ധ്രാപ്രദേശിലും ത്രമിഴ്നാട്ടിലും പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിലെ വ്ർഷ്യന് തുടരുകയാണ്

അദ്ദേഹം പരിപൂർണ്ണ ആരോഗ്യവാനാണെന്നും രോഗലക്ഷണങ്ങൾ ഒന്നും പ്രകടിപ്പിക്കുന്നില്ലെന്നും ഉപരാഷ്ട്രപതിയുടെ കാര്യാലയം വൃക്തമാക്കി

സമരങ്ങൾ ആരോഗൃ പരിപാലന മാർഗ്ഗ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിരിക്കണം പ്രതിഷേധ സമരങ്ങൾ ജ്നാധിപത്യ അവകാശമാണ്

അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ജീവിതം മുന്നോട്ടു കൊണ്ട് പോകുന്നതിന് ഇത് ആവശ്യമാണ് കമ്പോളങ്ങളിലും വ്യാപാരസ്ഥാപനങ്ങളിലും ഫലപ്രദമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പ്രാദേശിക തലത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ നടന്ന സർവ്വകക്ഷി യോഗത്തിൽ അഭ്യർത്ഥിച്ചു

പ്രതിരോധ് മാർഗങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന ജില്ല കളക്ടർമാരുടെ യോഗ്രത്തിന് ശേഷം മുഖ്യമന്ത്രി എടപ്പാടി പളനി സാമിയാണ് ഇക്കാര്യം അറിയിച്ചത് മരണ നിരക്ക് കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും കളക്ടർമാർക്ക് അദ്ദേഹം നിർദേശം നൽകി

നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഏതാനും മാസത്തേക്ക് മാത്രമായി സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മിഷന്റെ തീരുമാനം

മാർ ജില്ല മജിസ്ട്രേറ്റ് എന്നിവരുമായി പട്നയിൽ അവലോകന യോഗം ചേരും ബിഹാർ നിയമസഭ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അവലോക്യാൻ ചെയ്യാൻ മൂന്ന് ദിവസം സംഘം ബിഹാറിൽ തങ്ങും ൃ ക്ടോവിഡ് മഹാമാരിക്കിടയിൽ നിയമസഭ തിരഞ്ഞെടുപ്പ് നടക്കുന്നു ആദ്യ സംസ്ഥാനമാണ് ബിഹാർ

ഭരണകക്ഷിയായ സർക്കാരിനെ പുറത്താക്കാൻ കഴിഞ്ഞയാഴ്ചയാണ് രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് പാകിസ്ഥാൻ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് എന്ന പേരിൽ സഖ്യം ആരംഭിച്ചത് പ്രതിപക്ഷ പാർട്ടികളുടെ സംയുക്ത പത്രസമ്മേളനത്തിൽ ജെ

ഐ എഫ് മേധാവി മൌലാന ഫസൽ ഉർ റഹ്മാൻ ഒക്ടോബർ മുതൽ സർക്കാരിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി അറിയിച്ചു

കേസിൽ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു കൂട്ടബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടി ദില്ലി ആശുപത്രിയിൽ മരിച്ചതിനെ തുടർന്നാണ് നടപടി

ആരോഗ്യ സംരക്ഷണപദ്ധതി കൊറോണ വ്യാപനം സുപ്രീംകോടതിയുടെ ഭാവി എന്നിവയുമായി ബന്ധപ്പെട്ട ചൂടേറിയ വാഗ്വാദങ്ങളോടെയാണ് സംവാദം ആരംഭിച്ചത്

ബംഗ്ലാദേശിലെ സാമ്പത്തിക കാര്യ വിഭാഗം സെക്രട്ടറിയും ഇന്ത്യൻ ഹൈക്കമ്മീഷണറുമായിരിക്കും അധ്യക്ഷൻമാർ നിയന്ത്രണ രേഖയ്ക്ക് സമീപം നടപ്പാക്കുന്ന പദ്ധതികളാകും പ്രധാനമായും അവലോകനം ചെയ്യുക

വിനോദസഞ്ചാരികളുടെ വരവ് കണക്കിലെടുത്താണ് തീരുമാനം

എൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും